ജെ

പന്തളം കൊട്ടാരം അധികൃതരും തന്ത്രി കുടുംബവും യോഗത്തിൽ പങ്കെടുക്കും

ആന്റണി സെബാസ്റ്റ്യന്റെ മൃതദേഹം ഇരിങ്ങാലിക്കു ടയിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിക്കും

മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഘോഷം ഉദ്ഘാടനം ചെയ്തു

ഗവൺമെന്റിന് വിവേക പൂർവം പ്രവർത്തിക്കാൻ ലഭിച്ച അവസരമാണ് ഇതെന്നും അദ്ദേഹം പറഞ്ഞു ശബരിമലയിൽ പ്രായഭേദമന്യേ സ്ത്രീകൾക്ക് പ്രവേശിക്കാമെന്ന കോടതി വിധിയുടെ പകർപ്പ് ലഭിക്കുന്നതിനു മുൻപുതന്നെ നടപ്പാക്കാൻ ഗവൺമെന്റ് തയാറാകുകയായിരുന്നുവെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു

ശ്രീധരൻപിള്ള ശബരിമല യുവതീപ്രവേശന വിഷയവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന ഗവൺമെന്റ് വിളിച്ച സർവകക്ഷി യോഗത്തിൽ പങ്കെടുക്കണമോ എന്ന് എൻഡിഎ യോഗം ചേർന്ന് തീരുമാനിക്കുമെന്ന് ബിജെപി സംസ്ഥാന അധൃക്ഷൻ പി

ശ്രീധരൻപിള്ള

ചേർത്ത ചർച്ചയിൽ പങ്കെടുക്കുമെന്ന് പന്തളം കൊട്ടാര നിർവ്വാഹക സമിതി ചെയർമാൻ പി

ശശികമാര വർമ്മ പന്തളത്ത് പറഞ്ഞു

മണ്ഡല മകരവിളക്ക് തീർഥാടന കാലത്ത് യൂവതീ പ്രവേശനം അനുവദിക്കരുതെന്ന് ആവശ്യപ്പെടുമെന്നും അദ്ദേഹം പറഞ്ഞു

പത്മകുമാർ ക്ഷേത്രത്തെ കലാപഭൂമിയാക്കരുതെന്നാണ് ദേവസ്വംബോർഡിന്റെ നിലപാടെന്ന് പ്രസിഡൻറ് എ

ഗവൺമെന്റ് വിളിച്ച സർവകക്ഷി യോഗത്തിനുശേഷം യുവതി പ്രവേശനവുമായി ബന്ധപ്പെട്ട ദേവസ്വംബോർഡിന്റെ നിലപാട് വൃക്തമാക്കാമെന്നും അദ്ദേഹം പറഞ്ഞു

പത്തനംതിട്ട ഇലവുങ്കൽ സേഫ് സോൺ കൺട്രോളിംഗ് ഓഫീസിൽ നടക്കുന്ന ചടങ്ങിൽ രാജുഎബ്രഹാം എംഎൽഎ അധ്യക്ഷത വഹിക്കും

നാണു എം എൽ

മല കയറുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുന്നു മുതിർന്ന പൌരന്മാരായ തീർഥാടകർക്ക് ആവശ്യമെക്കീൽ ഡോളി സേവനം ലഭ്യമാക്കുന്നതിന് ബന്ധപ്പെട്ടിപ്പുന്ന് ഫോൺ നമ്പരുകൾ പമ്പയിൽ എത്തുമ്പോൾ തന്നെ ലഭ്യ്മാക്കണമെന്നും സമിതി നിർദ്ദേശിച്ചു

കഴിഞ്ഞദിവസം കൃഷ്ണഘാട്ടി സെക്ടറിലുണ്ടായ പാക് ആക്രമണത്തിലാണ് ആൻറണി വീരമൃത്യുവരിച്ചത്

ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായിരുന്നു പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് രാജ്യം ശിശുദിനമായി ആചരിക്കുന്നത്

ചാച്ചാജി എന്ന് വാത്സല്യത്തോടെ കുട്ടികൾ അഭിസംബോധന ചെയ്ത പണ്ഡിറ്റ് നെഹ്റൂ രാഷ്ട്രത്തിന്റെ ഭാവിയും നാളെയുടെ പൌരരുമായ ൂകുട്ടികളെ ശ്രദ്ധയോടും സ്നേഹത്തോടും പരിപാലിക്കാൻ ട്ട് ആഹ്വാനം ചെയ്തു രാജ്യത്തെ മറ്റിടങ്ങളിൽ എന്നപ്പോള്റ്ല് കേരളത്തിലും ശിശുദിനം സമുചിതമായി കൊണ്ടാടുകയാണ്

തുടർന്ന് നടന്ന കുട്ടികളുടെ പാർലമെന്റ് പി

ശ്രീമതി എം പി ഉദ്ഘാടനം ചെയ്തു

ദിനാചരണത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് തിരുവനന്തപുരം പുല യനാർക്കോട്ടയിലെ ഇൻഡ്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയബറ്റസ് ഡയറക്ടർ ശ്രീ

നാളെ രണ്ടാം തേരുത്സവം കഴിഞ്ഞ് മറ്റന്നാളാണ് പ്രസിദ്ധമായ ദേവരഥ സംഗമം

ട്ടടടടടടടടടടടട പാലക്കാട് കനത്ത മഴ തമിഴ്നാട് തീരത്ത് രൂപപ്പെട്ടിരിക്കുന്നു ന്യൂനമർദ്ദം കേരള തീരത്തേക്ക് അടുക്കുന്നതിനാൽ നാള്ളെയും മറ്റന്നാളും പാലക്കാട് ജില്ലയിൽ കനത്ത മഴയ്ക്ക് സ്മാധ്യതയുള്ളതായി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് ന്ൽകി

രാജേഷ് എം

ഷാഫി പറമ്പിൽ എം

ഒ ഇന്ത്യയുടെ അത്യാധുനിക വാർത്താ വിനിമയ ഉപഗ്രഹം ജി

എസ് എൽ

എൽ വി മാർക്ക് ട യുടെ രണ്ടാമത്തെ വലിയ വിക്ഷേപണ വികസന പ്പദ്ധതിയാണ് ഇത് നാല് ടൺ വരെ ഭാരമുള്ള ഉപഗ്രഹത്തെ ഭൂസ്ഥിര ഭ്രമണപഥത്തിലെത്തിക്കാൻ ജി എസ് എൽ

വാർത്താ വിനിമയ ഉപഗ്രഹത്തിൽ ഏറ്റവും മികച്ച നിലവാരത്തിലുള്ളതാണ് ജി

ഈ വർഷത്തെ ഐ എസ് ആർ ഒ യുടെ അഞ്ചാമത്തെ വിക്ഷേപണമാണ് ഇന്ന് നടക്കുന്ന ദൌത്യം